പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം

നദാലും ഡാനിൽ മെദ്വെദേവും ഏറ്റുമുട്ടും

എസ് ആർ ഒ സ്റ്റേഷനുകളുടെ ബന്ധം നഷ്ടമായതിൽആത്മവീര്യം നഷ്ടപ്പെടരുതെന്ന് പ്രധാനമന്ത്രി ഈ അവസരത്തിൽരാഷ്ട്രംഒപ്പമുടെ നരേന്ദ്രമോദി

ബംഗളൂരുവിലെഐ എസ് ആർ ഒ കേന്ദ്രത്തിൽരാവിലെരാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നുഅദ്ദേഹം

കൂടുതൽവിവരങ്ങളുമായി ബിന്ദു

എസ് ആർ ഒ ചെയർമാൻ ഡോ

എസ് ആർ ഒ

ശാസ്ത്രജ്ഞരെ ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രി സധൈര്യം മുന്നോട്ടുപോകാൻ അവരോട് ആഹ്വാനം ചെയ്തു

ശാസ്ത്രജ്ഞർ പ്രകടിപ്പിച്ച അസാമാന്യ അർപ്പണ മനോഭാവത്തെയും ധൈരൃത്തെയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിനന്ദിച്ചു രാജ്യം ഐ

ആർ

യിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം ട്വീറ്റർ സന്ദേശത്തിൽ അറിയിച്ചു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഐ എസ് ആർ ഒ യ്ക്ക് ധാർമ്മിക പിന്തുണ നൽകുന്ന ധാരാളം സന്ദേശങ്ങൾ എത്തി ചന്ദ്രനിലിറങ്ങുന്നതിനു തൊട്ടുമുൻപു തന്നെ ലാൻഡറുമായുള്ള ബന്ധം നഷ്ടമായതിൽ നിരാശപ്പെടരുതെന്നും നിരവധി നേതാക്കൾ ഐ എസ് ആർ ഒ

എസ് ആർ ഒ യിലെ കഠിനാധാനികളായ ശാസ്ത്രജ്ഞരോടൊപ്പമാണ് ഇന്ത്യയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു

യുടെ നേട്ടത്തിൽഓരോ ഇന്തൃക്കാരനും അഭിമാനിക്കുന്നതായും ശ്രീ

ധാരാളം നൂതനവും ആശാവഹവുമായ ബഹിരാകാശ പദ്ധതികൾക്ക് ഐ എസ്

ഒ അടിസ്ഥാനമിട്ടിട്ടു ന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ശാസ്ത്രജ്ഞരുടെ ആത്മാർപ്പണവും അഭിലാഷവും പാഴാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്ഡെസ്ക് ആകാശവാണി

കൊൽക്കത്തയിൽ ബംഗാൾ മേഖലാ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി

ഇതുവഴി ജി

ടി വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു

സീതാരാമൻ നിർദ്ദേശിച്ചു

ജസ്റ്റിസുമാരായ ദീപക് ഗുപ്തയും അനിരുദ്ധ ബോസും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉന്നാവോ പീഢനക്കേസിലെ പെൺകുട്ടിക്കു ായ അപകടം സംബന്ധിച്ച കേസ് പരിഗണിക്കവേയാണ് അഭിപ്രായം തേടിയത് ര ാഴ്ചയ്ക്കകം കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ സുപ്രീംകോടതി ന്യിബീർഐയോട് നിർദ്ദേശിച്ചു

പി ഐഎം നേതാവുമായ ബുദ്ധദേബ് ഭട്ടാചാർജിയെ ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ രാത്രി കൊൽക്കത്തയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഭട്ടാചാർജിയുടെ രക്തസമ്മർദ്ദവും ശരീരത്തിലെ ഓക്സിജന്റെ അളവും വളരെ താഴ്ന്ന നിലയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിൽ എത്തിയ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ബാനർജി അദ്ദേഹത്തിന്റെ മമതാ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാരുമായി സംസാരിച്ചു ഗവർണ്ണർ ജഗദീപ് ധൻഖറും ആശുപത്രിയിൽ ശ്രീ

ബുദ്ധദേബ് ഭട്ടാചാർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നു

പി മാർ തങ്ങളുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഫിറ്റ് ഇന്ത്യ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നലെ പാർലമെന്റ് മന്ദിരത്തിൽ ഫിറ്റ് ഇന്ത്യ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമുളളവരും കായിക ശേഷിയുളളവരുമായിരിക്കാൻ തങ്ങളുടെ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രചോദനം നൽകേ ത് എം പി മാരുടെ ഉത്തരവാദിത്തമാണെന്നും ഇ്ക്കാര്യത്തിൽ എം പി മാർ മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കണമെന്നും പ്രശ്രീ ബിർള പറഞ്ഞു

അത്യാധുനിക ഊർജ മികവുളള എലിവേറ്ററുകൾ എസ്കലേറ്ററുകൾ സൌരോർജത്തിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലെറ്റുകൾ എന്നിവയാൽ സർവ്വസജ്ജമാണ് മുംബൈയിലെ മെട്രോസ്റ്റേഷൻ

അടിസ്ഥാന സൌകര്യം ഊർജ്ജം സാങ്കേതിക വിദ്യ ഔഷധ നിർമ്മാണം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട കാരൃങ്ങൾ മൂന്നു ദിവസത്തെ ചർച്ചയിൽ വിഷയമാകും

വ്യാവസായിക അക്കാദമിക മേഖലകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കും

ഇന്ത്യാ കൊറിയ പ്രതിരോധ വ്യവസായ തലവന്മാരുടെ ശ്യോഗത്തെ അഭിസംബോധന ചെയ്യവെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സിയോളിൽ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം കര വ്യോമം നാവികം ഗവേഷണം വികസനം തുടങ്ങി വിവിധ മേഖലകളിലുളള സഹകരണ പദ്ധതികളാണ് മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുളളതെന്ന് രാജ്യരക്ഷാമന്ത്രി അറിയിച്ചു പ്രാദേശിക ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ നിർമ്മിത സുപ്രധാന ആയുധ ശേഖരങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താൻ കൊറിയൻ വ്യവസായ മേഖലയെ ഇന്ത്യ ക്ഷണിച്ചു

ഗോയലിന്റെ മുംബൈയിലെ വസതിയിലും കമ്പനിയിലുമടക്കം പന്ത്ര ാളം ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു

ഗോയലിന്റെ മൊഴി ഇ

രേഖപ്പെടുത്തി അധിക തെളിവുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ സഹായകമാകുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

രാജ്യത്തെ സമ്പദ് വൃവസ്ഥയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും പണ വിനിയോഗം സുഗമമാക്കാനും നിലവിലെ സംവിധാനത്തിലൂടെ സാധ്യമാകുമെന്നും കേന്ദ്രം പ്രത്യശ പ്രകടിപ്പിച്ചു ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന മഹാരത്ന നവരത്ന പൊതുമേഖലാ സ്ഥാപന തലവന്മാർ അടിസ്ഥാന വികസന മന്ത്രാലയം സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് ധനകാര്യ മന്ത്രാലയം വക്താക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത്

നടപ്പു സാമ്പത്തിക വർഷം ആരംഭിക്കാവുന്ന സാങ്കേതിക സാധ്യതയും സാമ്പത്തിക വികസനവും സാധ്യമാകുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംഘം ക െ ത്തി വിലയിരുത്തും

ഞായറാഴ്ച ട്രഷറി അടച്ചാൽ അടുത്ത തിങ്കളാഴ്ചയേ തുറക്കുകയുള്ളൂ ഗവൺമെന്റിന് സാമ്പത്തിക ഞെരുക്കമുങ്കിലും ആ പ്രയാസം ഓണത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു